നാമജപമാകാമെന്നും ഹൈക്കോട്ടതി നിരീക്ഷണത്തിന് മൂന്നംഗ പാനൽ അഴിക്കോട് എം

അയോഗൃനാക്കിയ നടപ്ടി ഉപാധികളോടെ സൂപ്രീംകോടതി സ്റ്റേ ്ലെയ്തു പതിനാലാം കേരള നിയമസഭയുടെ പൃതിമൂന്നാം സമ്മേളനത്തിന് തുടക്കം

ഡി

കൃഷ്ണൻകുട്ടി മന്ത്രിയായി ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു

തയ്യാറാക്കുന്ന പ്രവർത്തനം ഡിസംബർ അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഭുവനേശ്വറിൽ വർണ്ണാഭമായ തുടക്കം മത്സരങ്ങൾ നാളെ മുതൽ

ശബരിമലയിലെ പോലീസ് നടപടികൾ സംബന്ധിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ശബരിമലയിൽ നിരോധനാജ്ഞ തുടരാം

അന്നദാന പ്രസാദ കൌണ്ടറുകൾ നേരത്തെ അടയ്ക്കരുത്

എസ്

ടി സി മുഴുവൻ സമയവും സർവീസ് നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു

വിരമിച്ച ജഡ്ജിമാരായ ജസ്റ്റിസ് പി

രാമൻ ജസ്റ്റിസ് എസ് സിരിജഗൻ ഡി ജി

ഹേമചന്ദ്രൻ എന്നിവരെയാണ് നിരീക്ഷകരായി നിയോഗിച്ചത്

സമൂഹ ്രമാധ്യമങ്ങളിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഫോട്ടോ പ്റ്റ്റ്റ് ചെയ്തതിനാണ് അറസ്റ്റ് പത്തനംതിട്ട സി ഐ യും സംഘവും കൊച്ചിയിൽ നിന്നാണ് രഹ്ന ഫാത്തിമയെ അറസ്റ് ചെയ്തത് കേസിൽ ജാമ്യം ആവശ്യപ്പെട്ട് രഹ്ന നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ലഭിച്ചിരുന്നില്ല

ഭരണകൂടവും ശുചിത്വമിഷനും സംയുക്തമായി ജില്ലാ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഗ്രീൻ ശബരിമല

ഷാജി അഴിക്കോട് എം

ജനുവരിയിൽ അപ്പീൽ പരിഗണിക്കും വരെയാണ് ് സ്റ്റേ അനുവദിച്ചിട്ടുള്ളത് ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ലെങ്കിലും ശ്രീ

എന്നാൽ ആനുകൂല്യങ്ങൾക്ക് അർഹ്ഹതയുണ്ടാവില്ല വോട്ട് ചെയ്യാനുമാകില്ലെന്ന് ജസ്റ്റിസ് എ

ഷാജിയുടെ അപ്പീലിൽ ഏത്രീർക്ക്ഷികകളായ നികേഷ്കുമാർ ഉൾപ്പെടെ എല്ലാ കക്ഷികൾക്കും നോട്ടീസ്ട് നൽകാനും കോടതി ഉത്തരവിട്ടു അഴിക്കോട് മണ്ഡലത്തിൽ നിന്നുള്ള പതിരഞ്ഞെടുപ്പ് വിജയം വദ്ദാക്കിയത് ചോദ്യം ചെയ്ത് കെ

ഷാജി നൽകിയ ഹർജി് കഴിഞ്ഞ ബുധനാഴ്ച പരാമർശിച്ചപ്പോൾ നിയമസഭാർഗ്ഗമായി തുടരുന്നതിനും സഭാ നടപടികളിൽ പങ്കെടുക്കുന്നതിനും തടസ്സമില്ലെന്ന് വാക്കാൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പരാമർശം രേഖാമൂലം നൽകാനും ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യാനും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് അധ്യക്ഷനായ ബഞ്ച് തയ്യാറായിരുന്നില്ല

ഷാജിക്ക് ഇന്ന് പങ്കെടുക്കാനാവില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു

അന്തരിച്ച മഞ്ചേശ്വരം എംഎൽഎ പി

നാളെയും മറ്റന്നാളും വിവിധ ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്കായി അയയ്ക്കണമെന്ന പ്രമേയങ്ങൾ സഭ പരിഗ്ണിക്കും

കൃഷ്ണൻകുട്ടി സംസ്ഥാനത്ത് എൽ ഡി എഫ് മന്ത്രിസഭയിൽ പുതിയ ജലവിഭവ മന്ത്രിയായി ജെഡിഎസ് പ്രതിനിധി കെ

തുടർന്ന് ശ്രീ

സത്യപ്പ്രിതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും പ്രഖ്കടുത്തു അതേ സമയം പ്രതിപക്ഷത്ത് നിന്ന് ആരും പങ്കെടുത്തില്ല്

നവകേരളം കർമ്മപദ്ധതി ശിൽപശാലയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മിശ്രീ വിജയ

നവകേരള സൃഷ്ടിക്ക് ഊന്നൽ നൽകിയാവണം തദ്ദേശസ്ഥാപനങ്ങൾ പദ്ധതികൾ തയ്യാറാക്കേണ്ടത് ഇവ ഗുണനിലവാരമുള്ള പദ്ധതികളായിരിക്കണം കാലാനുസൃതമായ പുരോഗതി നാടിന് നേടിയെടുക്കേണ്ടതുണ്ട് പുതിയ കേരളം സൃഷ്ടിക്കാൻ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും പുതിയ നിക്ഷേപങ്ങൾ വരികയും വിവിധ മേഖലകളെ മാറ്റുന്ന വിധത്തിൽ പ്രവർത്തനം വ്യാപകമാക്കാനും കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

നദികളിലെ മാലിന്യ നിക്ഷേപം തടയാൻ ഫലപ്രദമായ ബോധവത്കരണം നടത്തുന്നതിന് തദ്ദേശസ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി എ

മന്ത്രിമാരായ കെ

ശൈലജ സി രവീന്ദ്രനാഥ് രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു

കീഴാര്യൂർ വിഷയത്തിൽ സി

എമ്മും ബി ജെ

അതിനിടെ കീഴാറ്റൂർ വിഷയത്തിൽ വയൽക്കളികൾ എന്ന സംഘടനയ്ക്ക് സമരവുമായി മുന്നോട്ടു പോവാനാവില്ലെന്ന് സി

എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി

സമരം അവസാനിപ്പിച്ച് വയൽക്കിളികളെ പിരിച്ചു വിടുകയാണ് വേണ്ടതെ ന്നും അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ ബി

പി ജനങ്ങളോട് മാപ്പു പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ടൂർണ്മെന്റ് നാളെയാണ് ആരംഭിക്കുന്നത്

ബൽജിയം കാനഡ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾക്കൊപ്പം പൂൾ സിയിലാണ് ഇന്ത്യയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ് തവണ ചാമ്പ്യനായി ഓസ്ട്രേലിയ ഗ്രൂപ്പ് ബിയിലും പാകിസ്ഥാൻ പൂൾ ഡിയുമാണ്

പനാജിയിൽ നിന്ന് പ്രമുഖ ചലച്ചിത്ര് നിരൂപകൻ എ ചന്ദ്രശേഖർ

യൂത്ത് ലീഗ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന യൂവജന യാ ത്രയക്ക് കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ആദ്ദേഹ്ം

ജെ പി ജനറൽ സെക്രട്ടറ്റ് കെ സുരേന്ദ്രനെ കളളക്കേസിൽ കൂടുക്കി ജ യിലിലടച്ചുവെന്നാരോപിച്ച് ബി ജെ പി കണ്ണൂർ എസ് പി ഓഫീസിലേക്ക് മാർച്ച നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാട നം ചെയ്തു ഗജ ഗവർണർ ചുഴലിക്കൊടുങ്കാറ്റ് ദുരിതമനുഭവിക്കുന്നവരെ ഗജ മൂലം സഹായിക്കാനായി തമിഴ് നാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരള ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്തു